രജൌരി പൂഞ്ച് മേഖലകളിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം

ഇന്ത്യൻ ഗുസ്തി താരം ദീപക് പുനിയ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ

രണ്ട് സംസ്ഥാനങ്ങളിലും മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു നക്സൽ ഭീഷണിയുള്ള മേഖലകളിൽ പ്രത്യേക സ്ത്രക്ഷ ഒരുക്കുമെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു

വട്ടിയൂർക്കാവ് കോന്നി അരൂർ എറണാകുളം മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിലേക്കാണ് ഉപ തെരഞ്ഞെടുപ്പ് പാരിസ്ഥിതിക് പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ വോയസ് ഏഴ് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പുറപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രാമധ്യേ ഫ്രാങ്ക്ഫർട്ടിൽ എത്തി ഐക്യരാഷ്ട്ര പൊതുസഭ സമ്മേളനം ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കാലാവസ്ഥാ തുടങ്ങിയവയാണ് ഈ വർഷം ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനം പരിഗണിക്കുന്ന വിഷയങ്ങൾ സുസ്ഥിര വള്ളർച്ചയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് അമേരിക്കയിലേക്ക് പുറപ്പെടും മുമ്പ് ഇടത്തിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു നാളെ ഹൂസ്റ്റണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്പുമായി ചേർന്ന് ഹൌഡി മോദി ചടങ്ങിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് ഇതാദ്യമായാണ് ഇന്ത്യൻ ് സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് തിങ്കളാഴ്ച ന്യൂയോർക്കിൽ കാലാവസ്ഥാ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ആരോഗ്യ രംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുൾപ്പെടെയുള്ള പരിപാടികളിലൂടെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ യു എൻ പരിപാടിയിൽ പ്രധാനമന്ത്രി വിശദീകരിക്കും

സച്ച്ഭാരത് അഭിയാൻ പരിപാടിയുടെ നേതൃത്വം പരിഗണിച്ച് ബിൽ ആൻഡ് മെലിൻഡാ ഫൌണ്ടേഷൻ നൽകുന്ന ഗ്ലോബൽ ഗോൾ കീപ്പേർസ് പുരസ്കാരവും സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സ്വീകരിക്കും ന സന്ദർശനത്തിനിടെ നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചയും നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഹൂസ്റ്റണിൽ ഊർജ്ജ എണ്ണ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ സമ്മേളനമാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി എണ്ണ ഊർജ്ജ മേഖലകളിലെ നിക്ഷേപം സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കി അമേരിക്കയിലെ മുൻനിര എണ്ണ ഊർജ്ജ കമ്പനികളിലെ സി ഇ ഒ മാർ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്

രജൌരി പൂഞ്ച് ജില്ല്കളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈനിക പോസ്റ്റുകൾക്കും ഒജ്നവാസ കേന്ദ്രങ്ങൾക്കും നേരെ പാക് സൈന്യം പ്രകോപനം ഇല്ലാതെ വെടിവെയ്പ്പ് നടത്തുകയായിരുന്നു

രജൌരി ജില്ലയിലെ മെന്ദർ മേഖലയിൽ ബാലാക്കോട്ടിലാണ് പാകിസ്ഥാൻ സൈനൃത്തിന്റെ ഭാഗത്തുനിന്നും വെടിവയ്പ്പും ഷെല്ലാക്രമണവും ഉണ്ടായത് ഇന്ന് പുലർച്ചെ പൂഞ്ച് ജില്ലയിൽ ് കെർണി മേഖലയിലെ ഷഹ്പൂരിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി രജൌരി പൂഞ്ച് ജില്ലകളിലെ നൌഷേര ബാലാക്കോട്ട് എന്നിവിടങ്ങളിലും പാകിസ്ഥാനി സൈന്യം പ്രകോപനം ഇല്ലാതെ വെടിവയ്പ്പ് നടത്തുകയുണ്ടായി ശക്തമായ വെടിവയ്പ്പിൽ നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി

ജെ

ഇരു സംസ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാതലത്തിലാണ് ബി ജെ

കോൺഗ്രസ് വക്താവ് പവാൻ ഖേര ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിക്കാര്യം കർഷകരുട്ടേയും യുവാക്കളുടേയും ഉൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഭരണാധികാരികളുമായി ഭൂീകരവാദം സംബന്ധിച്ച് ചർച്ച നടത്തി കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്ന് പാകിസ്ഥാൻ പറയുന്ന കള്ളക്കഥകളുടെ പശ്ചാത്തലത്തിലാണ് വിദേശകാരൃമന്ത്രിയുടെ ചർച്ചു

ഫിൻലന്റ് പ്രധാനമന്ത്രി ആന്റി റിനെ വിദേശകാര്യ മന്ത്രി പെക്കാ ഹാവിസ്റ്റോ എന്നിവരുമായി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചർച്ചാ വിഷയമായി ഭീകരവാദത്തോടൊപ്പം ഹരിത സാങ്കേതിക വിദ്യ സംബന്ധിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയ്ശങ്കർ ട്വിറ്ററിൽ കുറിച്ചു

കാളിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യ പദ്ധതി നിർവ്വഹണ നയം രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങിലാണെന്നും രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു ഉദ്യമമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള പദ്ധതി നടത്തിപ്പുകൾ കാര്യക്ഷമമായിരുന്നില്ലെന്ന് ശ്രീ വെങ്കയ്യ നായിഡു സൂചിപ്പിച്ചു

ശിവകുമാറിന്റെ ജാമൃാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുവേണ്ടി ഹാജരായ അഡിഷണൽ സ്യോളീസ്രിറ്റിർ ജനറൽ കെ

ശിവകുമാറിന് ് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും കേസ് ് അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മഹാസമാധി സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ്ആർ